ഡോക്സി ഡേ എലിപ്പനിയെക്കുറിച്ച് പൊതു അവബ്ടോധം സൃഷ്ടിക്കുന്നതിനും ഡോക്സി സൈക്ലിൻ ഗുളിക ന്റ്രേരീട്ടെത്തിക്കുന്നതിനുമായുള്ള ഡോക്സി ഡേ പ്രചാരണ പരിഎടിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും

പിതരണം ചെയ്യുന്നത്

നാളെ പുലർച്ചെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവൃമഹാഗണപതി ഹോമത്തോടെ പതിവു നടക്കുന്ന പൂജകൾക്കും വിശേഷാൽ പൂജകൾക്കും തുടക്കമാകും ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിലെ പുതിയ മേൽശാന്തിമാരെ കണ്ടെത്തുന്നതിനുള്ള നറുക്കെടുപ്പ് നാളെ സന്നിധാനത്തു നടക്കും